ശബരിമലയുടെ പാരമ്പര്യം എല്ലാ മതസ്ഥർക്കും അവകാശ പ്പെട്ടതാണെന്ന് ഹൈക്കോടതി

സംസ്ഥാനത്തെ മൂന്ന് ദേശീയപാതാ വികസന പദ്ധതികളുടെ പ്രവൃത്തി ഉദ്ഘാടനം നാളെ തലശ്ശേരിയിൽ നടക്കും റോഡുകൾ ആധുനിക സൌകര്യങ്ങളോടെ വികസിപ്പിക്കുമെന്ന് മന്ത്രി ജി സുധാകരൻ

ഇന്ത്യ സമഗ്രമായ മാറ്റങ്ങളുടെ ഘട്ടത്തിലൂടെ കടന്നുപോകു കയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു രാജ്യത്തെ വിക സന പ്രവർത്തനങ്ങൾ മൂലം ഇന്ത്യ അതിവേഗം വളരുന്ന വൻ സമ്പദ് വൃവസ്ഥകളിൽ ഒന്നായി മാറുകയാണെന്നും അദ്ദേഹം പറ ഞ്ഞു വരും ദശകങ്ങളിൽ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ഇന്ത്യ നായകത്വം വഹിക്കുമെന്നാണ് അന്താരാഷ്ട്ര ഏജൻസികൾ പറയുന്നതെന്നും പ്രധാനമന്ത്രി അറിയിച്ചു ടോക്കി യോവിൽ ജപ്പാനിലെയും ഇന്ത്യയിലെയും പ്രമുഖ ബിസിനസ് നേതാക്കളുമായി സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി രാജ്യത്ത് നടപ്പാക്കിയ ജൻധൻ യോജനയും ആധാറും ഡിജിറ്റൽ ഇടപാടുകളും ലോകം മുഴുവൻ പ്രശംസിക്കുകയാണെന്നും മോദി പറഞ്ഞു ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യമേഖലയിൽ ഇന്ത്യ വൻ പുരോഗതിയാണ് കാഴ്ചവെക്കുന്നതെന്നും മോദി പറഞ്ഞു

ജപ്പാൻ വിദേശകാര്യ മന്ത്രി താരോ കൊനോയുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി ഉഭയകക്ഷി ബന്ധങ്ങളും മേഖലാ ആഗോള വിഷയങ്ങളും ഇരുനേതാക്കളും ചർച്ചുചെയ്തു

ശബരിമലയുടെ പാരമ്പര്യം എല്ലാ മതസ്ഥർക്കും അവകാശ പ്പെട്ടതാണെന്ന് ഹൈക്കോടതി വൃക്തമാക്കി ശബരിമലയിൽ അഹിന്ദുക്കളെ പ്രവേശിപ്പിക്കരു തെന്ന ബി ജെ പി ഇൻഡലക്ചൽ സെൽ സംസ്ഥാന കൺവീനർ ടി ജി മോഹൻദാസ് നൽകിയ ഹർജിയിലാണ് കോടതി ഉത്തരവ് വിഷയത്തിൽ മോഹൻദാസ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി സംസ്ഥാനത്തിന്റെ മതേതരത്വം തകർക്കുന്നതാണ് ഹർജിയെന്ന് കോടതി ചൂണ്ടിക്കാട്ടി എല്ലാ വിശ്വാസികൾക്കും ശബരിമലയിൽ പ്രവേശിക്കാൻ സുരക്ഷയൊരുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു ശബരിമല പ്രവേശനത്തിന് സുരക്ഷ ആവശ്യപ്പെട്ട് നാല് യുവതികൾ നൽകിയ ഹർജി തീർപ്പാക്കിയാണ് ഹൈക്കോടതി നിർദേശം യുവതികൾ സുരക്ഷക്കായി ആദ്യം പൊലീസിനെ സമീപിക്കണ മായിരുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചു

പൊതുമുതൽ നശിപ്പിക്കുക പൊലീ സിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക അക്രമം അഴിച്ചു വിടുക തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇവരെ അറസ്റ്റ് ചെയ്ത ത്

ബാർ കോഴ കേസിൽ ഭരണ പരിഷ്ക്കാര കമ്മീ ഷൻ ചെയർമാൻ വി

അച്യുതാനന്ദൻ നൽകിയ ഹർജി പരിഗ ണിക്കുന്നത് ഹൈക്കോടതി മറ്റന്നാളത്തേക്ക് മാറ്റി

കേസിൽ എഫ്

ആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുൻമന്ത്രി കെ

മുൻ ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായി സാക്ഷി പറഞ്ഞവർക്ക് സുരക്ഷ വേണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ഫ്രാങ്കോക്കെതിരെ സാക്ഷി പറഞ്ഞ ഫാദർ കുര്യാക്കോസ് കാട്ടുതറയിൽ മരണപ്പെട്ട സാഹചര്യത്തിലാണ് ഹർജി

ഈ കോളജുകളിൽ അടിസ്ഥാന സൌകര്യമില്ലെന്ന മെഡിക്കൽ കൌൺസിലിന്റെ കണ്ടെത്തൽ സുപ്രീം കോടതി ശരിവെക്കുകയായിരുന്നു മെഡിക്കൽ കൌൺസിലിന്റെ നിലപാടിന് വിരുദ്ധമാണ് ഹൈക്കോടതി വിധിയെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു അടിസ്ഥാന സൌകര്യങ്ങൾ ഇല്ലാത്തതിനാൽ ഈ നാല് കോളജുകൾക്കും മെഡിക്കൽ കൌൺസിൽ നേരത്തെ പ്രവേശനാനുമതി നൽകിയിരുന്നില്ല

അതേസമയം സുപ്രിം കോടതി വിധിക്ക് എതിരെ റിവ്യൂ ഹരജി നൽകുന്നതിനുള്ള സാധ്യത തേടുമെന്ന് അൽ അസ്ഹർ കോളജ് പ്രതിനിധികൾ അറിയിച്ചു അയോധ്യയിലെ രാമജന്മഭൂമി ബാബ്റി മസ്ജിദ് ഭൂമി തർക്ക കേസ് പരിഗണിക്കുന്നത് സുപ്രീംകോടതി ജനുവരിയിലേക്ക് മാറ്റി

കൌൾ കെ

വാദം കേൾക്കുന്ന ബെഞ്ച് സംബ ന്ധിച്ചും ഇതോടൊപ്പം തീരുമാനിക്കുമെന്നും കോടതി പറഞ്ഞു അയോധ്യയിലെ തർക്കഭൂമി സുന്നി വഖഫ് ബോർഡിനും നിർമ്മോഹി അഖാഡയ്ക്കും രാംലല്ലയ്ക്കും തുല്യമായി വീതിച്ചു നൽകിയ അലഹബാദ് ഹൈക്കോടതി വിധിക്കെതിരായ ഹർജിക ളാണ് മൂന്നംഗബഞ്ച് പരിശോധിക്കുന്നത് കേരളത്തിലെ മൂന്ന് ദേശീയ പാത വികസന പദ്ധതികളുടെ പ്രവൃത്തി ഉദ്ഘാടനം നാളെ വൈകുന്നേരം തലശ്ശേരിയിൽ കേന്ദ്ര മന്ത്രി നിതിൻ ഗഡ്കരി നിർവഹിക്കും മാഹി തലശ്ശേരി ബൈപാസ് കാസർകോട് ജില്ലയിലെ നീലേശ്വരം പള്ളിക്കര റെയിൽവേ മേൽപ്പാലം പാലക്കാട് ജില്ലയിലെ നാട്ടുകാൽ താണാവ് റോഡ് എന്നിവയുടെ നിർമാണ പ്രവൃത്തിയാണ് കേന്ദ്ര മന്ത്രി ഉദ്ഘാടനം ചെയ്യുക എരഞ്ഞോളി പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷത വഹിക്കും കാസർകോട്ടെയും പാലക്കാട്ടെയും പദ്ധതികളുടെ ഉദ്ഘാടനം എരഞ്ഞോളിയിലെ ചടങ്ങിൽവെച്ച് കേന്ദ്ര മന്ത്രി വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് നിർവഹിക്കുക

സംസ്ഥാനത്തെ റോഡുകൾ ആധുനിക സൌകര്യങ്ങളോടെ വികസിപ്പിക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു ഓരോ നിയമസഭാ മണ്ഡലത്തിലേയും ഒരു റോഡ് അത്യാധുനിക സൌകര്യത്തോടെ വികസിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് ലഭിക്കാത്തതിനാലാണ് ദേശീയപാത വികസനത്തിന് സ്ഥലമേറ്റെടുക്കാനാകാത്തതെന്നും മന്ത്രി പറഞ്ഞു

ദേശീയ പാതയിൽ കണ്ണൂരിനും തലശ്ശേരിക്കുമിടയിലെ താഴെ ചൊവ്വ പാലം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായിരുന്നു അഴിമതിക്കെതിരെ ദേശീയ തലത്തിൽ ജാഗ്രതാ അവബോധ വാരത്തിന് തുടക്കമായി അഴിമതി ഇല്ലാതാക്കുക പുതിയൊരു ഇന്ത്യ പടുത്തുയർത്തുക എന്ന സന്ദേശമുയർത്തിയാണ് നവം ബർ മൂന്നുവരെ അഴിമതി വിരുദ്ധവാരാചരണം നടക്കുന്നത് ഇതിന്റെ ഭാഗമായി ഗവൺമെന്റ് ഓഫീസുകളിൽ ജീവനക്കാർ അഴിമതി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു ഭിന്നശേഷിക്കാർക്ക് സഹായങ്ങളും ഉപകരണങ്ങളും ഇന്ന് തൃശൂരിൽ കേന്ദ്രമന്ത്രി തവർച്ചന്ദ് ഗെഹ്ലോട്ട് വിതരണം ചെയ്യും

ഇതിന് മുമ്പ് വിമാനം തിരിച്ചിറക്കാൻ പൈലറ്റ് അനുമതി തേടിയിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് വിമാനാ വശിഷ്ടങ്ങൾ കടലിൽ നിന്ന് കണ്ടെടുത്തു

ഡൽഹി സ്വദേശി ഭവ്യ സുനേജയാണ് വിമാനത്തിന്റെ ക്യാപ്റ്റൻ

ഇന്ത്യ വെസ്റ്റിൻഡീസ് നാലാം ഏകദിനം ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് മുംബൈയിൽ ആരംഭിക്കും അഞ്ച് മത്സര പരമ്പര യിൽ ഓരോ മത്സരം ജയിച്ച ഇരൂടീമുകൾക്കും ഇന്നത്തെ കളി നിർണ്ണായകമാണ്

ഐ എസ് എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നാലാം മത്സരത്തിൽ ഇന്ന് ജംഷഡ്പൂർ എഫ് സിയെ നേരിടും

തുടർച്ചയായ രണ്ട് സമ നിലകൾക്കുശേഷം വിജയം ലക്ഷ്യമിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കളി ക്കിറങ്ങുന്നത്

കേരളം കർണാടക തമിഴ്നാട് പശ്ചിമബംഗാൾ ഒഡീഷ മധ്യ പ്രദേശ് ഡൽഹി ഉത്തർപ്രദേശ് എന്നീ എട്ട് തപാൽ സർക്കിളുക ളിലെ ടീമുകൾ ടൂർണ്ണമെന്റിൽ പങ്കെടുക്കും

അഞ്ചാമത് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി കിരീടം ഇന്ത്യയും പാകിസ്ഥാനും പങ്കുവെച്ചു മസ്കറ്റിൽ ഫൈനൽ കനത്ത മഴയെ തുടർന്ന് ഉപേക്ഷിച്ച സാഹചര്യത്തിലാണ് ഇന്ത്യയും പാകിസ്ഥാനും സംയുക്ത ജേതാക്കളായത് മികച്ച കളി ക്കാരനായി ഇന്ത്യയുടെ ആകാശ് ദീപിനെ തെരഞ്ഞെടുത്തു മല യാളിയും ടീം ക്യാപ്റ്റനുമായ പി ആർ ശ്രീജേഷാണ് ഏറ്റവും നല്ല ഗോൾകീപ്പർ കേരള ശാസ്ത്രസാഹിത്യ പരിഷത്ത് മുൻ സംസ്ഥാന പ്രസി ഡണ്ടും കേരളത്തിലെ സാക്ഷരതാപ്രസ്ഥാനത്തിന്റെ അമരക്കാര നുമായിരുന്ന കൊടക്കാട് ശ്രീധരൻ കോഴിക്കോട് പയ്യോളിയിൽ അന്തരിച്ചു

സംസ്കാരം നാളെ ഉച്ചയ്ക്ക് രണ്ടിന് വീട്ടുവളപ്പിൽ നടക്കും സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമത്തിലെ വാഹനങ്ങൾ തീയിട്ട് നശിപ്പിച്ചത് പെട്രോളുപയോഗിച്ചാണെന്ന് ഫോറൻസിക് റിപ്പോർട്ട് എന്നാൽ അക്രമവുമായി ബന്ധപ്പെട്ട് മറ്റ് തെളിവുക ളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് അറിയുന്നത്

സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഗവൺമെന്റ് രണ്ട് ഗൺമാൻമാരെ അനുവദിച്ചു

രണ്ടുനിലകളിലായി പ്രവർത്തിക്കുന്ന ഓഫീസിന്റെ താഴത്തെ നില പൂർണമായും കത്തി യിട്ടുണ്ട്

കേരളത്തിൽ നിലവിലുള്ള സൌഹാർദ്ദത്തിന്റെയും സമാധാന ത്തിന്റെയും അന്തരീക്ഷം നശിപ്പിച്ച് വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാൻ ചില ശക്തികൾ നടത്തുന്ന ശ്രമം ആപൽക്കരമാ ണെന്ന് കേരള നദ്വത്തുൽ മുജാഹിദ്ദീൻ കോഴിക്കോട് സൌത്ത് ജില്ലാ ശിൽപ്പശാല അഭിപ്രായപ്പെട്ടു ഡോ ഹുസൈൻ മടവൂർ ശിൽപ്പശാല ഉദ്ഘാടനം ചെയ്തു